പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും

ആയിരം ദശലക്ഷം ഡോളറിന്റെ വായ്പ്പ ക്രാറിൽ ഒപ്പുവെച്ച് ഇന്ത്യ

എസ് ആർ

മുന്നേറ്റം

ഇന്ന് തുടക്കം

കോവിഡാനന്തര ലോകത്തെ പരസ്പരസഹായമടക്കമുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ വിശദാംശങ്ങൾ ചർച്ചയാകും ഇരുരാജൃങ്ങളും തമ്മിലുള്ള പരസ്പരബന്ധം മികച്ചരീതിയിൽ തുടരുന്നതുകൊുതന്നെ മഹാമാരിക്കാലത്തും ബന്ധം സുഗമമായി മുന്നേറുകയാണ്

ലോകബാങ്കുമായുള്ള രണ്ടാം സഹകരണപരിപാടിയാണ് ഇതെന്ന് കേന്ദ്രധനമന്ത്രാലയം വൃക്തമാക്കി

ധനകാര്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറി സിഎസ് മൽഹോത്രയും ലോകബാങ്കിന്റെ ഇന്ത്യയുടെ ചുമതല വഹിക്കുന്ന സുമില ഗുൽയാനിയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്

നിലവിലെ താങ്ങുവില്ല് അനുസരിച്ച് കർഷകരിൽ നിന്നും നെല്ലു സംഭരണം തുടുതുമെന്നും മന്ത്രാലയം അറിയിച്ചു കേരളം ഉൾപ്പെടെ ഉള്ള നഗ്രസ്മാനങ്ങളിൽ നെല്ലു സംഭരണം പുരോഗമിക്കുകയാണ്

ആഗോള ബിസിനസ് സമൂഹത്തിന് ബഹു മുഖവും ചലനാത്മകവുമായ ഇന്ത്യൻ ബ്രാൻഡ് ഒരുക്കുന്നതിൽ വെബസൈറ്റ് സഹായകമാകുമെന്ന് കേന്ദ്ര മന്ത്രി പറഞ്ഞു

ഇ

ഈ രംഗത്ത് ഇന്ത്യ മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്ന് ക്ട്രേന്ദ്രമന്ത്രി പറഞ്ഞു ഇന്ത്യയ്ക്ക് അനുകൂലമായി വോട്ട് ച്ചിയ്ത അംഗങ്ങൾക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു

മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നും സമ്മർദ്ദം കുറയ്ക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളിൽ നിന്നും വിദ്യാഭ്യാസ വിദഗ്ദ്ധരിൽ നിന്നുമുള്ള അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ട് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പരീക്ഷ നടത്താൻ മന്ത്രാലയം തീരുമാനിക്കുകയായിരുന്നു

കേന്ദ്ര വിദ്യാഭ്യാസമന്ത്രി രമേശ് പൊഖ്രിയാൽ നിശാങ്കും യു

വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബും ന്യൂഡൽഹിയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് ക്കും കാണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉൾക്കൊള്ളിച്ച് ഒരു ജോയിന്റ് ടാസ്ക് ഫോഴ്സും രൂപീകരിക്കാൻ ചർച്ചയിൽ തീരുമാനിച്ചു

മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് യുഡിഎഫിന് ഭൂരിപക്ഷം നേടാനായത് മുന്നേറ്റം നടത്തിയ എൻഡിഎ പന്തളം പാലക്കാട് മുനിസിപ്പാലിറ്റികളിൽ അധികാരത്തിലെത്തി

ഡി

ഡി എഫിന് ലഭിച്ചത്

ഡി എഫിനാണ്

ജെ

ഡി

തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് എന്നീ കോർപറേഷനുകളിൽ എൽ

സർവ്വതലങ്ങളിലും എൽ

മുന്നേറിയെന്നും കേരള ജനതയുടെ വിജയമാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതേസമയം സർക്കാരിനെതിരായ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

ജെ പിയെ തോൽപ്പിക്കാൻ യു

എഫും എൽ

എഫും ക്രോസ് വോട്ട് ചെയ്തതായി ബി ജെ പി സംസ്ഥാന അദ്ധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

രണ്ടുകോടിയിലേറെ പേർ നിലവിൽ ചികിത്സയിലുണ്ട്

വൃദ്ധിമാൻ സാഹ് വിക്കറ്റ് കീപ്പറാകും വിരാട് കോഹ്ലിയാണ് ടീമിനെ നയിക്കുക

ഇന്നുക്കി മത്സരത്തിൽ ഒഡീഷ ബംഗളൂരു എഫ് സി യെ നേരിടും